എസ്

പരിപോഷിപ്പിക്കുന്നതിനായി കേന്ദ്രം ഏഴ് മന്ത്രിമാ രുൾപ്പെട്ട സ്മിതി രൂപീകരിച്ചു

ഏഴാം ശമ്പളക്കമ്മീഷ്ടൻ ആനുകൂലൃങ്ങൾ അധ്യാപകർക്കും അംധ്യാപക ഇതര ജീവനക്കാർക്കും ബാധകമാക്കാനുള്ള് നിർദ്ദേശത്തിന് ഗവൺമെന്റ് അംഗീകാരം

ദർശനത്തിനായി യുവതികളെത്തിയതിനെ തുടർന്ന് ശബരിമലയിൽ വീണ്ടും സംഘർഷാവസ്ഥ

ബ്രക്സിറ്റ് കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് തള്ളി

പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യങ്ങൾക്ക് പരാജയം

യുടെ പരിധിയിൽ റിയൽ ഏസ്റ്റേറ്റ് മേഖല പരിപോഷിപ്പി ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റും മുന്തിമാർ ഉൾപ്പെട്ട സമിതി രൂപീകരിച്ചു ഗുജറാത്ത് ഉപമുഖൃമ്ത്രി ്നിതിൻ പട്ടേലിന്റെ നേതൃത്വത്തി ലാണ് സമിതി കേരളം മഹ്യാരാഷ്ട്രകർണാടക പഞ്ചാബ് ഉത്തർപ്ര ദേശ് എന്നീ സംസ്ഥാനങ്ങളീലെ ധനമന്ത്രിമാരും ഗോവയിലെ പഞ്ചാ യത്ത് വകുപ്പ് മന്ത്രിയുമാണ് മറ്റ് അംഗങ്ങൾ ഭൂമിയിടപാട് മൂല്യ നിർണ്ണയം എന്നീ വിഷ്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് സമിതി വിലയിരുത്തും

സംസ്ഥാനങ്ങളിലെ ബിരുദതലത്തിലുള്ള ഗവൺമെൻ്റു കോളേജുകളിലും എയിഡഡ് കോളേജുകളിലും നിർദ്ദേശം ബാധകമാണ്

ഇതിനാവശ്യമായ ധനം രാജ്യത്തിനകത്തുനിന്ന് ലഭ്യമാക്കുന്നതിന് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു ആഗോള വ്യോമയാന ഉച്ചകോടിയിൽ പങ്കെടുക്കവേ മാധ്യമങ്ങളോടു സംസ്കാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിനായി വ്യോമയാന മേഖലയിലെ ആഗോള രംഗിത്തെ ് മുൻനിര ആളുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഗവൺമെന്റിന് താൽപര്യം ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി വീണ മുകുന്ദൻ സൂക്ഷ്മ ജലസേചനവും ആധുനിക കൃഷിയും എന്നതാണ് ഈ വർഷത്തെ കോൺഫറൻസിന്റെ പ്രമേയം

മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്രമന്ത്രി രാധാ മോഹൻ സിംഗ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരാകും കർഷകരടക്കമുള്ളവരിൽ സൂക്ഷ്മ ജലസേചനം വൻതോതിൽ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള അവബോധം വളർത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം

ആശയവിനിമയം മെച്ചപ്പെട്ടുത്തി കൂടുതൽ കർഷകരിൽ സൂക്ഷ്മ ജലസേചന മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ജലസേന മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി നിതിഷാര കുമാർ അറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണന നൽകിയാണ് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നതെന്നും മതപരിവർത്തന രീതികളോട് യോജിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

തമിഴ്നാട്ടിലെ പ്രശസ്ത കവിയും ത്തചിന്തകനുമായിരുന്ന തിരുവള്ളുവർ സാമിയുടെ തൃത്ചിന്തകളും എഴുത്തുകളും ജനങ്ങളെ മികച്ച രീതിയിൽ സ്വാധീനിച്ചിരുന്നതായും വരുംകാലങ്ങളിലും അത് ് തൂടരുമെന്നും ശ്രീ

ആയ ബൽദേവ് സിംഗ് ആം ആദ്മി പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം രാജിവച്ചു ബൽദേവ് സിംഗ് തന്റെ രാജിക്കത്ത് പാർട്ടി കൺവീനർ അരവിന്ദ് കെജരിവാളിന് അയച്ചു പാർട്ടി അതിന്റെ പ്രവർത്തനങ്ങളിൽ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്നും പ്രത്യേയ ശാസ്ത്രങ്ങളിൽ നിന്നും വൃതിചലിക്കുന്നതിനാലാണ് താൻ രാജിവയ്ക്കുന്നതെന്ന് അദ്ദേഹം രാജികത്തിൽ പറയുന്നു പഞ്ചാബ് നദീജല വിഷയത്തിൽ ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാട് കപടമാണെന്നും ശ്രീ

നേരത്തെ പഞ്ചാബ് നിയമസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് സുഖ്പാൽ സിംഗ് ഖൈരയും എ

യിൽ നിന്ന് രാജിവച്ചിരുന്നു

ചാനലുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത് ചരിത്രപരമായ നടപടിയാണെന്ന് പ്രസാർ ഭാരതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശശിശേഖർ വെമ്പതി അഭിപ്രായപ്പെട്ടു വിശ്വസ്തവും ആധികാരികവുമായ നിലവാരത്തിലാണ് ആകാശവാണി വാർത്തകൾ വർഷങ്ങളായി രാജ്യത്തെ ജനങ്ങളിലേക്കെത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ആകാശവാണിയുടെ ഹിന്ദി ഇംഗ്ലീഷ് വാർത്തകൾ മാത്രമാണ് നിലവിൽ മറ്റു ചാനലുകളിലൂളട പ്രക്ഷേപണം ചെയ്യാൻ അനുമതിയുള്ളത് എന്നാൽ പ്രൂദേശിക ഭാഷകളിലുള്ള വാർത്തകൾ കൂടി സ്ഥകാര്യ എഫ്

പൊതുജന സംപ്രേഷകരായ ആകാശവാണിയുടെ വാർത്തകൾ മറ്റു ചാനലുകളിൽ കൂടി ജനങ്ങളിലേക്കെത്തുന്നതോടെ വ്യാജ വാർത്തകളെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കാനാകും രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ശേഖരണ ശൃംഖലയാണ് ആകാശവാണിയും ദൂരദർശനുമെന്ന് പ്രസാർ ഭാരതി സി

ആകാശവാണി ദൂരദർശൻ വാർത്തകളെ ഗവൺമെന്റ് വാർത്തകൾ എന്ന നിലയിലേക്കു മാത്രം ചുരുക്കി വിലയിരുത്തരുതെന്നും ശ്രീ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

എൽ എ മാരുടെ പിന്മാറ്റം കർണാടക ഗവൺമെന്റിനുമേൽ യാതൊരു സ്വാധീനവും ചെലുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി എച്ച്

കൂട്ടുകക്ഷി ഗവൺമെന്റിനു ഇത് ഭീഷണി ഉയർത്തുന്നില്ല എന്നും ശ്രീ

എൽ

ജെ പി നടത്താൻ ഉദ്ദേശിക്കുന്ന റാലികൾക്കും പൊതുയോഗങ്ങൾക്കും അനുവാദം നൽകണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെട്ട ബഞ്ചാണ് ഇതുസംബന്ധിച്ച നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്ത് ബി ജെ പി നടത്താൻ ഉദ്ദേശിക്കുന്ന രഥയാത്രയുടെ പുതുക്കിയ സമയക്രമം അധികൃതർക്ക് മുന്നിൽ സമർപ്പിച്ച് അനുമതി തേടണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു

ദർശനത്തിനെത്തിയ രണ്ട് യുവതികളെ നീലിമലയിൽ പ്രതിഷേധക്കാർ തടയുകയായിരുന്നു

ശരണമന്ത്രം വിളികളുമായി പ്രതിഷേധക്കാർ ഇവരെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ വളഞ്ഞു

തിരുവനന്തപുരത്തെ വസതിയിലും യൂണിവേഴ്സിറ്റി കോളേജിലും കലാഭവനിലും പൊതുദർശനത്തിനു വച്ച ഭൌതികശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു

യൂറോപ്യൻ യൂണിയനിൽ നിന്നു പുറത്തുപോകാനുള്ള തീരുമാനത്തിനെ എതിർത്ത് ഭൂരിഭാഗം വോട്ടു രേഖപ്പെടുത്തി

ബ്രിട്ടന്റെ നേതൃപദവിയിലുള്ള ഒരാൾക്ക് ഇക്കാലത്തുണ്ടായ ഏറ്റവും വലിയ പരാജയവുമാണിത് പരാജയത്തെ തുടർന്ന് എതിർ കക്ഷി നേതാവായ ജെറെമി കോർബിൻ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെട്ടുക്കും

രാവിലെ നടന്ന പുരുഷ ഡബിൾസിൽ ഇന്ത്യോ മെക്സിക്കൻ സഖ്യമായ ലിയാഡർ പെയ്സ് റെയ്സ് വരേല സഖ്യത്തിന് പരാജയം മറ്റൊരു മത്സരത്തിൽ രോഹൻ ബൊപ്പണ്ണ ദിവിജ് ശരൺ സഖ്യം സ്പാനിഷ് സഖ്യമായ കരോന ബുസ്ത ഗാർഷൃലോപ്പസ് സഖ്യത്തോട് പരാജയപ്പെട്ടു ഇന്ത്യൻ ടെന്നീസ് താരം ജീവൻ നെടുംചെഴിയാനും അമേരിക്കൻ താരം നിക്കോളാസ് മൺറോയും ജെർമൻ ക്രൊയേഷ്യ താരങ്ങളായ കെവിൻ ക്രൈറ്റ്സിനേയും നിക്കോള മെക്റ്റിക്കിനേയുമാണ് ഇപ്പോൾ നേരിടുന്നത്